കോവിഡ് സാഹചര്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് എല്ലാ അവശ്യ സൌകര്യങ്ങളും ഉറപ്പ് വരുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണസിയിലെ സന്നദ്ധ സംഘടനാ പ്രതിനിധികളുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തി

ജമ്മുകശ്മീരിൽ ്ട്ബോർഡർ റോഡ്സ് നിർമ്മിച്ച ആറ് പാലങ്ങൾ കേന്ദ്രിക്മ്പ്തി രാജ്നാഥ്സിംഗ് ഉദ്ഘാടനം ചെയ്തു

റെയിൽവേ സ്വകാര്യവൽക്കരിക്കില്ലെന്ന് കേന്ദ്ര മന്ത്രി പിയൂഷ്ഗോയൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കും

കേരളത്തിൽ കോവിഡ് സൂപ്പർ വ്യാപനം തടയാൻ ആരോഗ്യവകുപ്പ് കർമ്മ പദ്ധതി തയ്യാറാക്കി

കാൺപൂരിൽ എട്ട് പോലീസുകാരെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ കുറ്റവാളി വികാസ് ദുബെ അറസ്റ്റിൽ

വാരണസിയിലെ സ്ന്ന്ബ് സംഘടനാ പ്രതിനിധികളുമായി വീഡിയോ കോൺഫ്റൻസിംഗിലൂടെ ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ലോക രാഷ്ട്രങ്ങൾ ഇന്ത്യയെ ഉറ്റുനോക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

അടച്ചിടൽ കാലത്ത് ഭക്ഷ്യ വിതരണത്തിനും മറ്റ് ആശ്വാസ നടപടികൾക്കും മുന്നിട്ടിറങ്ങിയ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ സേവനങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നു ദിവസത്തെ വെർച്ചൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

ആത്മ നിർഭർ ഭാരത് പദ്ധതിയുടെ അവതരണവും സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്

രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ്സിംഗ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു വിദൂര മേഖലകളുടെ വികസനത്തിലൂടെ രാജ്യത്തിന്റെ സമഗ്ര വികസനം ഉറപ്പാക്കുമെന്ന് ശ്രീ

ലോക്ഡൌൺ കാലഘട്ടത്തിലും ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ സേവനങ്ങൾ പ്രശംസനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു നാല് പാലങ്ങൾ അഖ്നൂർ മേഖലയിലും രണ്ടെണ്ണം ജമ്മു രാജ്പൂര മേഖലയിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത്

ചൊവ്വാഴ്ച ശ്രീ രാജ്നാഥ്സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗു പ്പിനിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ അടിസ്ഥാന സൌകര്യ ദ്വീക്സന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്തിരു്ന്നു

കോവിഡ് പ്രതിസന്ധി മൂലമുള്ള പ്രയാസങ്ങൾ തരണം ചെയ്യാൻ സംസ്ഥാനങ്ങൾക്ക് തുക പ്രയോജനകരമായിരിക്കുമെന്ന് ധനമന്ത്രാലയം ട്വിറ്ററിൽ കുറിച്ചു

എസ് ഐ

ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി കൌൺസിൽ രോഗനിർണ്ണയ ലബോറട്ടി സ്ഥാപിച്ചു വരികയാണ്

ഐ ടി കളിലെ പൂർവ്വ വിദ്യാർത്ഥികളും ഫാക്കൽറ്റിയും ചേർന്നാണ് അലംനി കൌൺസിൽ

ജലാശ്വ ഐ

പി അതിന്റെ ദേശീയ ചിന്താധാരയിൽ രാജ്യത്തെ യുവതയെ രാഷ്ട്ര സേവനത്തിനായി ഒരുക്കുന്നതിൽ സ്ത്യുത്യർഹ പങ്കാണ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ട്വിറ്റർ സന്ദേശ്ത്തിൽ പറഞ്ഞു

സ്വകാര്യവത്കരിക്കുമെന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര മന്ത്രി തള്ളി

വോയ്സ് ഇന്ത്യൻ റെയിൽവേയുടെ നിലവിലുള്ള എല്ലാ സർവ്വീസുകളും അതേപടി തുടരുമെന്ന് ശ്രീ

ഈ അധിക ട്രെയിനുകൾ നിലവിലുള്ള സർവ്വീസുകളെ ഒരു രീതിയിലും ബാധിക്കില്ല സ്വകാരൃ പങ്കാളിത്തം തൊഴിലവസരങ്ങൾ വർധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്

യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് അധിക ട്രെയിനുകൾ ഓടിക്കുന്നതെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു

റെയിൽവേയിലെ പ്രഥമ സ്വകാരൃ നിക്ഷേപ സംരംഭമാണിതെന്ന് മന്ത്രാലയം അറിയിച്ചു തൊഴിലവസര സൃഷ്ടിക്കൊപ്പം ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും പരിപാലന ചെലവ് കുറയ്ക്കുന്നതും പദ്ധതി ലക്ഷ്യമിടുന്നതായി റെയിൽവെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

സാമൂഹ്യൂ ൃ ്ആക്കലം പാലിച്ചും പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ചുമാണ് ് നിർമാണം പൂർത്തിയാക്കിയതെന്ന് റെയിൽവേ അറിയിച്ചു

ഒറ്റ ദിവസത്തെ ഏറ്റവും ഉയർന്ന രോഗവ്യാപനമാണിത്

മൂന്ന് ആരോഗൃ പ്രവർത്തകർക്കും രോഗം പകർന്നു

രോഗബാധിതരെ കണ്ടെത്തി സമ്പർക്കത്തിലുള്ളവരെ ക്വാറന്റൈനിലാക്കും

രോഗബാധിത പ്രദേശങ്ങളിൽ വിവിധ മാർഗങ്ങളിലൂടെ ബോധവത്ക്കരണം ശക്തിപ്പെടു ത്തുമെന്നും മന്ത്രി ശൈലജ വ്യക്തമാക്കി

പി യിലെ കാൺപൂരിൽ എട്ട് പോലീസുകാരെ വെടിവച്ചു കൊന്ന കേസിലെ മുഖ്യ പ്രതി വികാസ് ദുബെ പോലീസ് പിടിയിലായി

ഇയാളുടെ മൂന്ന് അനുയായികൾ കഴിഞ്ഞ ദിവസം പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു നിരവധി കേസുകളിൽ പിടികിട്ടാപ്പുള്ളിയാണ് വികാസ് ദുബെ

ഭീകരരുടെ പ്രവൃത്തിയെ മനുഷൃത്വത്തിന് നേരെയുള്ള കിരാത നടപടിയെന്ന് വിശേഷിപ്പിച്ച ഗവർണ്ണർ ഭീരുത്വ ജടിലമായ ഇത്തരം പ്രവൃത്തികൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ എത്രയും വേഗം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടു വരണമെന്നും ആവശ്യപ്പെട്ടു